ശബരിമലയിലേക്ക് സ്ത്രീകളുടെ പ്രവാഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

ഒഡീഷ ആന്ധ്ര സംസ്ഥാനങ്ങളിലെ തീരദേശ ജില്ലകളിൽ മഴ ശക്തിപ്രാപിച്ചിട്ടുണ്ട് ഒഡീഷയിലെ അഞ്ച് ജില്ലകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തോളം പേരെ മാറ്റിപാർപ്പിച്ചിട്ടുണ്ട് മേഖലയിൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി

ശബരിമലയിലേക്ക് സ്ത്രീകളുടെ പ്രവാഹം ഉണ്ടാകുമെന്നു പ്രതീക്ഷിക്കുന്നില്ലെന്ന് മന്ത്രി ക്ടകംപ്ള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ പ്രക്ഷോപങ്ങ ളുടേയും പ്രചാരണങ്ങളുടേയും സാഹചര്യത്തിൽ സ്ത്രീകൾ അധികമായി സന്നിധാനത്തേക്ക് പോകില്ലെന്നും മന്ത്രി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ശബരിമലയിൽ തുലാമാസ പൂജക്ക് നട തുറക്കുമ്പോൾ സ്ത്രീകൾക്കായി അധിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട തില്ലെന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന് ദേവസവം ബോർഡ് യോഗം തീരുമാനിച്ചു മുൻകാലത്ത് സ്ത്രീകൾക്കായി ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ മാത്രമേ ഇത്തവണയും ഉണ്ടാകു എന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അറിയിച്ചു സന്നിധാനത്ത് വനിതാ പൊലീസിനെയും വനിതാ ജീവനക്കാരെയും വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ഇടതുമുന്നണി സംസ്ഥാന കമ്മറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ശബരിമല സ്ത്രീപ്രവേശന കാരൃത്തിൽ ഗവൺമെന്റ് നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനെപ്പറ്റി മുന്നണി യോഗം തീരുമാനം എടുത്തേക്കും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധി ഗവൺമെന്റ് വീഴ്ച്ചമൂലമല്ല ഉണ്ടായതെന്ന് വൃക്തമാക്കുന്നതരത്തിലായിരിക്കും പ്രചാരണ പരിപാടി

ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഗാന്ധിയൻ സമരമാണ് നടത്തുന്നതെന്നും അതിനെ കുറുക്കു വഴികളിലൂടെ തകർക്കാനാണ് ഗവൺമെന്റും സിപിഐഎമ്മും ശ്രമിക്കുന്നതെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള കൂറ്റപ്പെടുത്തി എൻഡിഎ നേതൃത്വത്തിൽ പന്തളത്ത് നിന്നാരംഭിച്ച ശബരിമല സംരക്ഷണ കാൽനട യാത്രയുടെ ആദ്യ ദിവസത്തെ സമാപനം അടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ്ങ് മാർച്ച് ഇന്ന് തുടങ്ങും നാലു ദിവസത്തെ മാർച്ചിൽ അഞ്ച് ലക്ഷത്തോളം പേരെ പങ്കെടുപ്പിക്കുമെന്ന് സമിതി അറിയിച്ചു പന്തളം വലിയകോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് തിരുവനന്തപുര ത്തേക്കാണ് ലോങ്ങ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ശബരിമല സ്ത്രീം പ്രവേശ വിഷയത്തിൽ ബിജെപിയ്ക്കും സിപിഐഎമ്മിനും ഇരട്ടത്താപ്പാണെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കെ

യൂത്ത് കോൺഗ്രസിന്റെ ഉപവാസ സമരം ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല വിധിക്കെതിരെ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ വിമർശിച്ചു സ്ത്രീകൾക്കനുകൂലമായ വിധിയെ സ്ത്രീകൾ തന്നെ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസിലാകുന്നില്ലെന്ന് അവർ ഡൽഹിയിൽ പറഞ്ഞു വിധിക്കെതിരെ കേന്ദ്ര നിയമം കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമത്തെ എതിർക്കുമെന്നും രേഖാശർമ്മ വൃക്തമാക്കി ശബരിമലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് തയാറാകണമെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എം

ജോസഫൈൻ ആവശ്യപ്പെട്ടു

വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുക യായിരുന്നു അവർ ശബരിമല സൂപ്രീം കോടതി വിധിക്കെതിരെ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകാൻ ഹിന്ദു നേതൃസമ്മേളനം ഇന്ന് കോട്ടയത്ത് ചേരും ശബരിമല കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ഹൈന്ദവ സംഘടനകളുടേയും അയ്യപ്പ ഭക്ത സംഘടനകളുടേയും നേതാക്കൾ പങ്കെടുക്കും

സന്നിധാനത്തെ നിർമ്മാണങ്ങൾ മാസ്റ്റർ പ്താൻ ലംഘിച്ചുവെന്ന പരാതിയിലാണ് അന്വേഷണം വനഭൂമിയിൽ അനധികൃത നിർമ്മാണം നടന്നതായി സംസ്ഥാന ചീഫ് കൺസർവേറ്റർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എല്ലാ മുസ്തീംഗ്ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കാൻ നിർദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു ശബരിമലയിൽ എല്ലാ പ്രായത്തിലുംപെട്ട സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മോസ്കുകളിലെ സ്ത്രീ വിവേചനവും ഒഴിവാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ ആരോഗൃ സുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാകാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു

ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചരൃങ്ങൾ കണക്കിലെടുത്ത് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു മലയാളം മിഷന്റെ ഭൂമിമലയാളം പരിപാടി നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ലോക മലയാള ദിനാചരണം ഭാഷാ പ്രചാരണ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി സ്വദേശത്തും വിദേശത്തും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി എ

വോട്ടെടുപ്പ് രാവിലെ ഏഴിന് തുടങ്ങും

ഒളിംപിക് മെഡൽ എന്ന ലക്ഷ്യത്തിലേക്ക് കായിക താരങ്ങളും ഗവൺമെന്റും ഒന്നിച്ച് നീങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി താരങ്ങൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ജയരാജൻ അറിയിച്ചു സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് ദേശീയ തൊഴിൽ പരിശീലന കൌൺസിലും ദേശീയ നൈപുണ്യ വികസന ഏജൻസിയും സംയോജിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി എൻസിവിടി എൻഡിഎസ്എ എന്നിവ സംയോജിപ്പിച്ച് നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ എജ്യുക്കേഷൻ ആന്റ് ട്രെയിനിങ്ങ് എന്ന ഏജൻസി രൂപീകരിക്കും ഇതുവഴി ഉദ്യോഗാർത്ഥികളിലെ കഴിവുകൾ വർദ്ധിപ്പിച്ച് ഇന്തൃയെ ലോക നൈപുണൃ തലസ്ഥാനമാക്കി മാറ്റാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി ധർമേന്ദ്രപ്രധാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

രാമകൃഷ്ണൻ അറിയിച്ചു മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ പുതുക്കിയ അലൈൻമെന്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി ജില്ലാ അതിർത്തിയായ പൂല്ലുവായ് മുതൽ കക്കാടംപൊയിൽ വരെ പ്രദേശത്തെ അലൈൻമെന്റിനാണ് അംഗീകാരം കേരളാ ഫിഷറീസ് സർവകലാശാലയുടെ പ്യ്യന്നൂർ പ്രാദേശിക കേന്ദ്രം രാവിലെ മമ്പലത്ത് മന്ത്രി ജെ

വടക്കൻ കേരളത്തിൽ ജലകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വരുടെ സഹകരണ സംഘമായ അക്വാകൾച്ചർ ഡവലപ് മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനവും പയ്യന്നൂർ തായിനേരിയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ മാപ്പിള ബേ ഫിഷറീസ് കോംപ്ലക്സിൽ ആരംഭിക്കുന്ന മത്സൃതൊഴിലാളി പരിശീലന കേന്ദ്രത്തിന് അവർ തറക്കല്ലിടും കോഴിക്കോട് പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖത്ത് വിവിധ വികസന പദ്ധതികൾ മന്ത്രി ജെ

ഫിംഗർ ജെട്ടി മണൽ നീക്കൽ എന്നിവയടക്കം വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്

സ്ഫോടനത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഇയാളാണ് എത്തിച്ചതെന്ന് പൊലീസ് പറഞ്ഞു പത്തനംതിട്ടയിൽ എക്സൈസ് സംഘം ഒന്നേകാൽ കിലോ കഞ്ചാവുമായി ഒരാളെ പിടികൂടി

ഇയാൾ നിരവധി കഞ്ചാവു കേസുകളിൽ പ്രതിയാണ്

ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത് സർവ്വകക്ഷി സമാധാന യോഗത്തിലാണ് തീരുമാനം സർവ്വകലാശാലയിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കാനും യോഗം തീരുമാനിച്ചു കാസർകോട് പെരിയ കേന്ദ്ര സർവ്വകലാശാലയിൽ ഉണ്ടായത് സിപിഐഎം ഗൂഢാലോചനയുടെ ഭാഗമായ കലാപമാണെന്ന് ബിജെപി കാസർകോട് ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് കുറ്റപ്പെടുത്തി